വാക്സിനേഷൻ പദ്ധതിയുമായിട്ട്ട്രോഗ്യവകുപ്പ് സംസ്ഥാനത്ത് കോവിഡ് നിരക്ക് ഉയരുന്നു

ആക്ഷേപത്തിൽ തെ്രഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി പ്രതിപക്ഷനേതാവ്

ഡി എഫിന്റെ പ്രതിഷേധ സംഗമം കണ്ണൂരിൽ വിഷുപൂജയ്ക്കായി ശബരിമല നട ഇന്ന് തുറക്കും

ദർശനം വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് എത്തുന്ന ഭക്തർക്ക്

പദ്ധതിയ്ക്കാവശ്യമായ വാക്സിൻ നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ

സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ യജ്ഞം ശക്തിപ്പെടുത്തുന്നതിന് വരുംദിവസങ്ങളിൽ ആരോഗ്യപ്രവർത്തകർ വീടുകളിലെത്തി പരമാവധി പേരെ വാക്സിനേഷന് പ്രേരിപ്പിക്കും വരും ദിവസങ്ങളിലെ രോഗബാധിതരുടെ എണ്ണൂ വിലയിരുത്തിയ ശേഷം കടുത്ത നിയന്ത്രണം വേണോ എന്ന ക്ട്രിക്ക് തീരുമാനിക്കും

ഹൈക്കോടതി തള്ളിയ കേസിലാണ് ലോകായുക്തയുടെ വിധിയെന്നും നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കെ ടി ജലീൽ വിധിയോട് പ്രതികരിച്ചു ധാർമ്മികത അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെടണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു തെറ്റൂകാരനാണെന്ന കണ്ടെത്തൽ ഗുരുതരമാണെന്നും മന്ത്രിസ്റ്റ്ട്ട്യിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണമെന്നുംട് ബി ജെ

സുരേന്ദ്രൻ ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ഇരട്ടിപ്പിന് പിന്നാല്ലെ സംസ്ഥാനത്ത് തപാൽ വോട്ടിലും വ്യാപകമായി തിരിമറി നടന്നെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ബി ജെ

പ്രത്യേക കേന്ദ്രത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്ക് വീട്ടിലെയും ഓഫീസിലെയും വിലാസത്തിൽ ബാലറ്റുകൾ പിന്നെയും വരുകയാണ് ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നും തപാൽ വോട്ടിലെ ഇരട്ടിപ്പ് കണ്ടെത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പോസ്റ്റൽ വോട്ടുകൾ സമാഹരിച്ചതെന്ന് ബിജെപി സംസ്ഥാന അധൃക്ഷൻ കെ സുരേന്ദ്രൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടി

കൊലപാതക രാഷട്രീയത്തിനെതിരെ യു ഡി എഫ് പാനൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേസ് നിയമപരമായി യു ഡി എഫ് നേരിടുമെന്നും ചെന്നിത്തല പറഞ്ഞു മുസ്ലീം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി

കുഞ്ഞാലിക്കുട്ടി കെ സുധാകരൻ എം

എ മാരായ കെ

ഷാജി ഷാഫി പറമ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു

എഫിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പാനൂർ മേഖലയിൽ സമാധാന സന്ദേശയാത്ര നിട്ടത്തും കടവത്തൂരിൽ നിന്ന് തുടങ്ങി മുക്കിൽപീടിക വഴി പെർിങ്ങ്തൂരിൽ സമാപിക്കുന്ന തരത്തിലാണ് യാത്ര നടത്തുക

കോവിഡ് ബാധിതനായി തിരുവനന്തപുരത്തെ സ്വകാരൃ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആരോഗൃനിലയും തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ

സ്വർണവ്യാപാരി മഹാരാഷ്ട്ര സ്വദേശി സമ്പത്തിനെയും ഡ്രൈവർ അരുണിനെയും കാറിന്റെ ഗ്ലാസുകൾ തകർത്ത് വെട്ടി പരുക്കേൽപ്പിച്ച ശേഷമായിരുന്നു കവർച്ചു സംഭവത്തിൽ റൂറൽ എസ് പി യുടെ നേതൃത്വത്തിൽ പരിശോധന പുരോഗമിക്കുകയാണ്

എസ് ആർ

ബസ്സുകളിൽ താമസിക്കാനുള്ള സൌകര്യവും വിനോദ്യ സഞ്ചാരികൾക്കുള്ള യാത്രാസൌകര്യവും ഒരുക്കിയതിനു പിന്നാ്ലെയാണ് പുതിയ പദ്ധതി

മണ്ഡലം ട്രഷറർ പി ബാലുവിനെയാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പൂരം പ്രദർശനം തൃശൂർ പൂരത്തിന് വിളംബരം കുറിച്ച് പൂരം പ്രദർശനത്തിന് ഇന്ന് തുടക്കമാകും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം വൈകിട്ട് അഞ്ച് മണിക്ക് മന്ത്രി എസി മൊയ്തീൻ നിർവഹിക്കും മന്ത്രി വി എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും

ഷിഗല്ല സ്ഥിരീകരിച്ച സ്രവ പരിശോധനാഫലം ലഭിച്ചത് ഇന്നലെയാണ്

എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നേരിട്ടുള്ള അന്വേഷണമാണ് വേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു

ഡി എഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ മൻസൂറിന്റെ വീട് സന്ദർശിച്ചശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം